ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന അഞ്ച് ജില്ലകളിൽ പ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് അഞ്ചിടത്ത് തെരഞ്ഞെടുപ്പ് മാറ്റി വാർത്തകൾ വിശദമായി രാജ്യത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ ഗവൺമെന്റ് പ്രതിബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ഐ

അടുത്തകാലത്തായി രാജ്യത്ത് ഹാക്കത്തോണുകളുടെ സംസ്കാരം വികസിക്കുകയാണെന്നും ദേശീയ ആഗോള പ്രശ്നങ്ങളിൽ യുവമനസ്സുകൾ മികച്ച പരിഹാരം നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ മികച്ച പരിശീലനം ലഭിക്കുന്നതിനും അന്താരാഷ്ട്ര വേദി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും നരേന്ദ്രമോദി പറഞ്ഞു

ദേദ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായതോ അതിശക്തമായതോ ആയ മഴക്ക് സാധ്യതയുണ്ട്

ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ജില്ലകളിൽ കാറ്റിന് സാധ്യതയുണ്ട് കേരള തീരത്ത് മത്സ്യ ബന്ധനത്തിനുള്ള നിരോധനം തുടരും ദേദ ബുറേവി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകളെ തുടർന്ന് കൊല്ലം ജില്ലയിൽ സജ്ജമാക്കിയ സംവിധാനങ്ങളും ജാഗ്രതയും തുടരുമെന്ന് ജില്ലാ കലക്ടർ ബി

ജില്ലയിൽ ചില പ്രദേശങ്ങളിൽ ചെറിയതോതിൽ മഴ ലഭിച്ചു തീരമേഖലയിൽ പ്രശ്നങ്ങളില്ല

മറ്റ് ജില്ലകളിൽ അഞ്ഞൂറിൽ താഴെയാണ് രോഗബാധ ദേദ മലപ്പുറം ജില്ലയിൽ കോവിഡ് പരിശോധന നടത്തുന്ന സ്വകാര്യ ലാബുകളിലും ആശുപത്രികളിലും പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തി ഗവൺമെന്റ് നിശ്ചയിച്ച നിരക്കിനേക്കാൾ കൂടുതൽ നിരക്ക് ഈടാക്കുന്നതായും ഗവൺമെന്റിലേക്ക് അയക്കുന്ന റിപ്പോർട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നതിൽ പിഴവ് വരുത്തുന്നതായും പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പെരിന്തൽമണ്ണ തിരൂർ മഞ്ചേരി പാണ്ടിക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തി ദേദ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചില്ലെങ്കിൽ നാം വലിയ വില നൽകേണ്ടി വരുമെന്ന് നടൻ ശ്രീജിത്ത് രവി പറഞ്ഞു

ശ്വാസകോശ സംബന്ധമായ അസുഖത്തെത്തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം

ജമ്മുകശ്മീരിൽ കേന്ദ്രഗവൺമെന്റിന്റെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം

ദിനേശ്വർ ശർമ രാജ്യത്തിന്റെ സുരക്ഷാ മേഖലകളിൽ ദീർഘകാലം സംഭാവനകൾ നൽകിയെന്നും നിരവധി തന്ത്രപ്രധാനമായ ഭീകര വിരുദ്ധ പ്രവർത്തനങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തുവെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ പറഞ്ഞു ദ്ദേ സമരം ചെയ്യുന്ന കർഷകരുമായി കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് വീണ്ടും ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും അഞ്ചാംതവണയാണ് കർഷകരുടെ പ്രശ്നങ്ങളിൽ ചർച്ച നടക്കുന്നത്

ദര ആദ്യഘട്ടം വോട്ടെടുപ്പ് നടക്കുന്ന അഞ്ച് ജില്ലകളിൽ പരസ്യ പ്രചാരണം നാളെ വൈകീട്ട് ആറിന് അവസാനിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് ദേദ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന അഞ്ച് ജില്ലകളിൽ സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് വിതരണം പുരോഗമിക്കുകയാണ് ദേദ കോവിഡ് ബാധിതർക്കും ക്വാറന്റീനിലുള്ളവർക്കും ഏർപ്പെടുത്തിയ സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് ലഭിക്കാത്ത സ്പെഷ്യൽ വോട്ടർമാർ അതാത് വരണാധികാരിയെയോ ഉപവരണാധികാരിയെയോ ഫോണിൽ ബന്ധപ്പെടണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ തിരുവനന്തപുരത്ത് അറിയിച്ചു ഇതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പർ സ്പെഷ്യൽ വോട്ടർമാർക്ക് ലഭിക്കുന്ന തരത്തിൽ പരസ്യപ്പെടുത്താൻ തദ്ദേശ ഭരണസ്ഥാപന സെക്രട്ടറിമാർ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷണർ നിർദ്ദേശിച്ചു

ജീവനക്കാർക്ക് അനുവദിച്ച സാധാരണ പോസ്റ്റൽ ബാലറ്റിനും കോവിഡ് രോഗികൾക്കും ക്വാറന്റീനിൽ ഉള്ളവർക്കും അനുവദിച്ച സ്പെഷ്യൽ ബാലറ്റിനും ഇത് ബാധകമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡസ്ക് ആകാശവാണി ദ്ദേ സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് അഞ്ച് വാർഡുകളിലെ തിരഞ്ഞെടുപ്പ് മാറ്റിയതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു കൊല്ലം പന്മന ഗ്രാമപഞ്ചായത്തിലെ പറമ്പിക്കുളം കോഴിക്കോട് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ താത്തൂർപൊയിൽ എറണാകുളം കളമശേരി മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പൽ വാർഡ് തൃശൂർ കോർപ്പറേഷനിലെ പുല്ലഴി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ തില്ലങ്കേരി എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പാണ് മാറ്റിവെച്ചത്

ദേദ തദ്ദേശ തിരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്യുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവധി അനുവദിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി വേതനം കുറയ്ക്കാതെ അവധി നൽകാനാണ് ഉത്തരവ്

വൈകീട്ട് ആറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ദേദ ഇടതുപക്ഷവും കോൺഗ്രസും ലീഗും ഒരുമിച്ച് എതിർക്കുന്നുവെന്നത് ബി

പിയുടെ വളർച്ചയാണ് കാണിക്കുന്നതെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ

മഞ്ചേരിയിൽ ബി ജെ പി സ്ഥാനാർഥി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേദ ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്നലെ ബംഗലൂരു എഫ് സി ചെന്നൈയിൻ എഫ് സിയെ ഒരു ഗോളിന് തോൽപ്പിച്ച് സീസണിലെ ആദ്യജയം നേടി പെനാൽറ്റിയിലൂടെ ക്യാപ്റ്റൻ സുനിൽ ചേത്രിയാണ് ബംഗലൂരുവിനായി വിജയഗോൾ സ്വന്തമാക്കിയത് ഇന്ന് രാത്രി ഏഴരയ്ക്ക് നോർത്ത് ഈസ്റ്റ് യുനൈറ്റഡ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും

മാർഗനിർദ്ദേശങ്ങൾ പിന്നീട് പുറത്തിറക്കുമെന്ന് ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസ് മുംബൈയിൽ അറിയിച്ചു ദ്ദേ തദ്ദേശ തിരഞ്ഞെടുപ്പ് ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത കോവിഡ് പരിശോധന നടത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ലെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു ഇതു സംബന്ധിച്ച് ചില തെറ്റായ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കമ്മീഷന്റെ വിശദീകരണം